കോവിഡ് മഹാമാരിയിൽ നിന്ന് സ്ഥായിയായ മോചനം എന്നതായിരിക്കും ഉച്ചകോടിയുടെ പ്രധാന ചർച്ചാവിഷയം മഹാമാരിക്കെതിരായ തയ്യാറെടുപ്പുകളും തൊഴിൽ പുനഃസ്ഥാപിക്കുന്നതിന് മാർഗങ്ങളും ഉച്ചകോടിയിൽ നേതാക്കൾ ചർച്ച ചെയ്യും

നീലേശ്വരം നഗരസഭയിലെ ഒരു നാമനിർദ്ദേശ പത്രികയിൽ തീർപ്പ് കൽപ്പിച്ചിട്ടില്ല ജില്ലാ പഞ്ചായത്തിലേക്ക് സമർപ്പിച്ച നൂറ് പത്രികകളിൽ ആറെണ്ണം തള്ളി

ജില്ലാ പഞ്ചായത്തിൽ മൂന്നെണ്ണം തള്ളി

ജില്ലാ പഞ്ചായത്തിൽ സമർപ്പിച്ച എല്ലാ പത്രികകളും സ്വീകരിച്ചു

ഇടുക്കി ജില്ലയിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് സമർപ്പിച്ച എല്ലാ പത്രികകളും സാധുവാണെന്ന് കണ്ടെത്തി

ന്യൂസ് ഡെസ്ക് ആകാശവാണി ദര ആലപ്പുഴ കൈനകരി പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ എൽഡിഎഫ് സ്ഥാനാർഥിക്ക് എതിരില്ല

ദ്ദേ സ്ഥാനാർത്ഥികൾക്ക് തിരഞ്ഞെടുപ്പ് ചിഹ്നം ശുപാർശ ചെയ്യുന്നതിന് ചുമതലപ്പെടുത്തിയ പാർട്ടി ഭാരവാഹികളുടെ കത്ത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന ദിവസമായ മറ്റന്നാൾ വൈകിട്ട് മൂന്നിന് മുമ്പ് സമർപ്പിച്ചാൽ മതിയെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വി

ദേദ രാജ്യത്ത് കോവിഡ് വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട നയവും മുന്നോട്ടുള്ള വഴിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ച യോഗം അവലോകനം ചെയ്തു വാക്സിൻ നിർമ്മാണത്തിന്റെ പുരോഗതി റെഗുലേറ്ററി അംഗീകാരം സംഭരണം തുടങ്ങിയ പ്രധാനപ്പെട്ട വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്തു

ആശുപത്രികളിൽ കോവിഡ് രോഗികളുടെ ചികിത്സക്കായി ഉപയോഗിക്കുന്ന ഈ മരുന്ന് ഫലപ്രദമല്ലെന്ന ശുപാർശകളെ തുടർന്നാണ് നടപടി ദേദ സംസ്ഥാനത്ത് ഇന്നലെയും കോവിഡ് രോഗികളേക്കാൾ കൂടുതൽ രോഗമുക്തർ മരണസംഖ്യ രണ്ടായിരത്തിലേക്ക്

ദേദ ലോകം കോവിഡിനെ അതിജീവിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തിനൊപ്പം പ്രതിരോധ മാനദണ്ഡങ്ങൾ പിന്തുടരുന്നതിലെ ജാഗ്രതയും ഉറപ്പാക്കണമെന്ന് ഗായിക സിതാര ആകാശവാണിയോട് പറഞ്ഞു

ദേദ കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനത്തിന് ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു

ദേദ ഇന്ന് ലോക മത്സ്യത്തൊഴിലാളി ദിനം

ദേദ ഇന്ത്യൻ സൂപ്പർലീഗ് ഫുട്ബോൾ ഏഴാം സീസണിൽ ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി ഗോവയിൽ നടന്ന മത്സരത്തിൽ എ ടി കെ മോഹൻബഗാൻ എതിരില്ലാത്ത ഒരു ഗോളിനാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയത് രണ്ടാം പകുതിയിൽ ഫിജി താരം റോയ് കൃഷ്ണയാണ് എ

കെയുടെ വിജയഗോൾ നേടിയത് ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്

ഗോവയിലെ തിലക് മൈതാൻ സ്റ്റേഡിയത്തിലാണ് മത്സരം ദേദ മെഡിക്കൽ അനുബന്ധ ബിരുദ കോഴ്സുകളിലേക്ക് ആദ്യ അലോട്ട്മെന്റ് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു ഇന്നു മുതൽ വ്യാഴാഴ്ച വരെ ഫീസ് അടയ്ക്കാം വ്യാഴാഴ്ച വൈകുന്നേരം മൂന്നിനുള്ളിൽ കോളേജിൽ പ്രവേശനം നേടണം

നാഗർകോവിൽ ജംഗ്ഷനു പകരം നാഗർകോവിൽ ടൌണിലായിരിക്കും ട്രെയിൻ നിർത്തുക ദേദ സോളാർ പീഡന കേസിൽ മുൻ മന്ത്രി എ പി അനിൽകുമാറിനെതിരായ പരാതിയിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും

എറണാകുളം ഒന്നാംക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാവാനാണ് നോട്ടീസ് ദര ഏഴിമല നാവിക അക്കാദമിക്ക് നേരെ ബോബ് ഭീഷണി ഉണ്ടായ സാഹചര്യത്തിൽ അക്കാദമിക്ക് സമീപത്തെ ഒഴിഞ്ഞ കെട്ടിടങ്ങളിലും വീടുകളിലും ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് പോലീസ് അറിയിച്ചു ദേദ കണ്ണൂർ സെൻട്രൽ ജയിലിൽ റിമാന്റിൽ കഴിയുന്ന മാവോയിസ്റ്റ് ടി കെ രാജീവനെ മഞ്ചേരി യു എ

എ സ്പെഷ്യൽ കോടതി കൂടുതൽ അന്വേഷണത്തിനും തെളിവെടുപ്പിനുമായി ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് കസ്റ്റഡിയിൽ വിട്ടു കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ടി കെ രാജീവൻ അറസ്റ്റിലായത് ദര കേരളവർമ്മ പഴശ്ശിരാജയുടെ കോവിലകമായ കണ്ണൂർ പഴശ്ശിയിലെ പടിഞ്ഞാറെ കോവിലകം സംരക്ഷിത സ്മാരക മാക്കുന്നതിന് സർവ്വെ ആരംഭിച്ചു കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്നരക്കോടി ചെലവഴിച്ചാണ് പ്രവൃത്തി നടത്തുക

ദേദ കോഴിക്കോട് കോർപ്പറേഷൻ ഓഫിസിൽ പത്രികാ സമർപ്പണവുമായി ബന്ധപ്പെട്ട് ചിത്രമെടുക്കാൻ ശ്രമിച്ച പത്രഫോട്ടോഗ്രാഫറുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ നടപടി ജനാധിപത്യത്തിന് അപമാനവും പത്ര സ്വാതന്ത്യത്തിന് നേരെയുണ്ടായ കൈയേറ്റവുമാണെന്ന് എം കെ രാഘവൻ എം